കൈവരിക്കാൻ കേന്ദ്ര ബജറ്റ് സഹായകരമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഉദ്ഘാടനം ചെയ്യും

ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥിയെ ഡിസ്ചാർജ് ചെയ്യാൻ തീരുമാനം

അടിസ്ഥാനമാക്കി ഇന്ന് ലോക റേഡിയോ ദിനം

ഡി എ സർക്കാർ കഴിഞ്ഞ എട്ട് മാസങ്ങളിലായി സ്വീകരിച്ചതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി

സമയം പാഴാക്കാതെ രാജ്യം ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് കുതിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു

അഞ്ച് ലക്ഷം കോടി ഡോളർ സമ്പദ് വ്യവസ്ഥ എന്ന ലക്ഷ്യം നേടാനായി സർക്കാർ നിരവധി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും കേന്ദ്ര ബജറ്റ് ഈ ലക്ഷ്യം നേടാൻ സഹായിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി ഇന്നല്ലെയ്ക്ക് പ്രതിനിധി സംഘം ശ്രീനഗറിലെത്തിയത്

ഇന്നലെ ശ്രീനഗർ സന്ദർശിച്ച സംഘം വ്യാപാരികളുമായും സംരംഭകരുമായും കൂടിക്കാഴ്ച നടത്തി

പൊതുജനങ്ങളുമായും കായികതാരങ്ങളുമായും മാധ്യമപ്രവർത്തകരുമായും സംഘം കൂടിക്കാഴ്ച നടത്തി

മുതിർന്ന ഗവൺമെന്റ് ഉദ്യോഗസ്ഥരിൽ നിന്നും സ്ഥിതിഗതികൾ സംബന്ധിച്ച വിവരങ്ങൾ സംഘം ശേഖരിച്ചു

ന്യൂസ് ഡെസ്ക് ആകാശവാണി

മയക്കുമരുന്ന് കടത്തലുമായി ബന്ധപ്പെട്ട് ഉയർന്ന് വരുന്ന ഭീഷണികൾ നേരിടാൻ എല്ലാ അംഗരാജ്യങ്ങൾക്കും സമ്മേളനം അവസരം ഒരുക്കും ഏഷ്യൻ രാജ്യങ്ങളിൽ മയക്കുമരുന്ന് കടത്തൽ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ഇത് തടയുന്നതിനുള്ള കാര്യക്ഷമമായ വേദിയായാണ് ബിം സ്റ്റെക് നിലകൊള്ളുന്നത്

ഇതിലൂടെ ആരോഗ്യ പ്രശ്നങ്ങൾ സംബന്ധിച്ചു ബോധവത്കരുണ്ടുത്തീന് എല്ലാ സ്കൂളുകളിലേയും രണ്ട് അധ്യാപകർഫ്പീത്ം ഇനി മുതൽ ആരോഗ്യ സൌഖ്യ അംബാസിഡർമാരായി നിർയ്കാഗിക്കും കേന്ദ്രമന്ത്രിമാരായ ഡോ ഹർഷവർദ്ധൻ ശ്രീ

ജലസംരക്ഷണത്തിന്റെ ആവശ്യകത മലിനീകരണത്തിന്റെ ദോഷവശങ്ങൾ പ്താസ്റ്റിക് രഹിത ഇന്ത്യയുടെ പ്രാധാന്യം എന്നീ സന്ദേശങ്ങളുമായാണ് ഹർഷ് പണ്ഡിറ്റ് മാരത്തൺ ഓടിയത് ഇത്തരം ബോധവൽക്കരണങ്ങൾ ഇനിയും തുടരണമെന്നും എല്ലാവിധ പ്രോത്സാഹനങ്ങളും ഉണ്ടാകുമെന്നും കേന്ദ്രമന്ത്രി ഹർഷിനും കുടുംബത്തിനും ഉറപ്പുനൽകി

പരിശോധനാ ഫലങ്ങൾ നെഗറ്റീവാണെന്ന് പൂനെ എൻ

വി

കർശനമായ നിരീക്ഷണത്തിൽ രോഗിയെ ആശുപത്രിയിൽ പരിചരിക്കുകയും ആരോഗ്യ വകുപ്പിന്റെ നിർദ്ദേശങ്ങൾ രോഗിയും കുടുംബാംഗങ്ങളും കൃത്യമായി പാലിക്കുകയും ചെയ്തിരുന്നു കൃത്യമായ ചികിത്സയിലൂടെയും പരിചരണത്തിലൂടെയുമാണ് കൊറോണ വൈറസിനെ അതിജീവിക്കാൻ സാധിച്ചത്

പ്രസിഡന്റ് മാർസലോയുടെ ആദ്യ ഇന്ത്യൻ സന്ദർശനമാണിത് രാഷ്ട്രപതി ഭവനിൽ നാളെ അദ്ദേഹത്തിന് ക്ടൌദ്യോഗിക വരവേൽപ്പ് നൽകും

ഇതിനെ ജാഗ്രതയോടെ നോക്കിക്കാണണമെന്നും കൊറോണ ബാധ ഏതു രീതിയിലേക്കും മാറാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നതായും അദ്ദേഹം പറഞ്ഞു

ഗുജറാത്ത് മുഖ്യമന്ത്രി വിജയ് രുപാനി ഗാന്ധി നഗറിൽ ഇന്നലെ റഷ്യൻ റെയിൽ പ്രതിനിധികളുമായി ഇതു സംബന്ധിച്ച കൂടിക്കാഴ്ച നടത്തി ഗുജറാത്ത് ഗവൺമെന്റിന്റെ അധീനതയിലുള്ള ജി

പദ്ധതി നിർവ്വഹണവും സാമ്പത്തിക സഹായവും കേന്ദ്ര ഗവൺമെന്റും ഗുജറാത്ത് ഗവൺമെന്റും സംയുക്തമായാകും നിർവ്വഹിക്കുക

പുതുക്കിയ സമയക്രമം ഉദ്യോഗസ്ഥരുടെ ജീവിതരീതികൾ മെച്ച്പ്പെടുത്തുകയും വൈദ്യുതി ഇന്ധന ചെലവുകൾ എന്നിവ കുറയ്ക്കുപ്പാൻ സഹായിക്കുകയും ചെയ്യുമെന്നാണ് കണക്കാക്കുന്നത്ത് ഈയലെ മുംബൈയിൽ മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തീൽ നടന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം

ശ്രവ്യ മാധ്യമത്തിലൂടെ വാർത്തകളും വിവരങ്ങളും ജനങ്ങളിലേക്കെത്തിക്കുന്നതിന്റെ പ്രാധാന്യം ഭരണനേതൃത്വങ്ങൾക്ക് ബോധ്യപ്പെടുത്തുന്നതിനും റേഡിയോ ദിനാചരണത്തിലൂടെ ലക്ഷ്യമിടുന്നു ലോകത്തിലെ ഓരോ കോണിലെയും ജനങ്ങളെ ഒരുമിച്ച് കൊണ്ടുവരുന്നതിലും ജനങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നതിലും റേഡിയോയുടെ പങ്ക് വളരെ വലുതാണ് റേഡിയോയും വൈവിദ്ധ്യവും എന്നതാണ് ഈ വർഷത്തെ ലോക റേഡിയോ ദിനത്തിന്റെ പ്രമേയം ദ്രുതഗതിയിലുള്ള വളർച്ചയും വൈവിദ്ധ്യമാർന്ന പരിണാമങ്ങളും ഉണ്ടായ മാധ്യമ ലോകത്തിൽ റേഡിയോയ്ക്ക് സുപ്രധാന സ്ഥാനമാണ് ഉള്ളതെന്ന് റേഡിയോ ദിന സന്ദേശത്തിൽ ഐക്യരാഷ്ട്ര സഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് അഭിപ്രായപ്പെട്ടു വാർത്തകളും വിവരങ്ങളും ഏറ്റവും കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന മാധ്യമം ഇപ്പോഴും റേഡിയോ ആണെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് ആകാശവാണി

മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗമാണ് ഇക്കാര്യത്തിൽ തീരുമാനം കൈക്കൊണ്ടത്

തീര്ദേഴ്സ് പ്രിപാലന ചട്ട ലംഘനവുമായി ബന്ധപ്പെട്ട് സുപ്രീം ക്കോട്ടതി യിലുള്ള കേസിൽ നിയമവശം പരിശോധിച്ച് മറുപടി നീൽക്രാനും മന്ത്രിസഭ തീരുമാനിച്ചു

കുറുപ്പ് വിടവാങ്ങിയിട്ട് ഇന്ന് നാല് വർഷം ഭാവഗീതങ്ങളിലൂടെയും സരളസുന്ദർ കവിതകളിലൂടെയും ജനപ്രിയ നാടക ചലച്ചിത്രഗാനങ്ങളിലൂടെയും മലയാളികളുടെ ഹൃദയം കീഴടക്കിയ കവിയുടെ ചരമവാർഷികം ജന്മനാടായ കൊല്ലം ചവറയിൽ വിവിധ അനുസ്മരണ പരിപാടികളോടെ ആചരിക്കും കവിയുടെ ജന്മഗൃഹമായ ചവറ നമ്പ്യാടിക്കൽ വീട്ടിലെ സ്മൃതിമണ്ഡപത്തിൽ ഒ

ജന്മഗൃഹ സ്മാരക സമിതിയുടെ ആഭിമുഖ്യത്തിൽ പുഷ്പാർച്ചനയും കാവ്യാർച്ചനയും നടക്കും പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ നേതൃത്വത്തിൽ ചവറ ബസ്റ്റാൻഡിൽ വൈകിട്ട് അഞ്ചിന് അനുസ്മരണ സമ്മേളനം നടക്കും മന്ത്രി സി രവീന്ദ്രനാഥ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും